നരേന്ദ്രമോദി വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുക്കും

പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കുകുകുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനം

ഡൽഹിയിൽ ആറ് ലക്ഷം റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകൾ നടത്തും

സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിന് മാർഗനിർദേശങ്ങളായി

വാക്സിൻ ഈ വർഷം അവസാനത്തോടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകാരോഗ്യസംഘടന

കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം

അതിനിടെ ലഡാക്കിൽ ഇന്ത്യൻ സൈനികർ നിരായുധരായിരുന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ ആരോപണം തള്ളി വിദേശകാരൃമന്ത്രി എസ്

അതിർത്തികളിലെ സൈനികർ എപ്പോഴും സായുധരായിരിക്കുമെന്നും ഗാൽവാനിലും അങ്ങനെ ആയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ സൈനികർ മുഖാമുഖം വരുമ്പോൾ ആയുധം ഉപയോഗിക്കരുതെന്ന മുൻകാലങ്ങളിലെ കരാർ പാലിച്ചു വരികയാണെന്നും ശ്രീ

ലോക്ഡൌണിന് ശേഷം സ്വദേശങ്ങളിലേക്ക് തീരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനോടൊപ്പം സുസ്ഥിര അടിസ്ഥാന സൌകര്യ വികസനവുട്ട് പിച്ചതി ലക്ഷ്യമിടുന്നു ബിഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രൂജിസ്ഥാൻ ഒഡീഷ ഝാർഖണ്ഡ് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ പ്രി ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക

മടങ്ങിയെത്തിയ ജില്ലകളെയാണ് ഇതിനായി തെരെഞ്ഞെടുത്തത് തൊഴിലാളികളുടെ നൈപുണ്യ വിവരങ്ങൾ ഇതിനായി കേന്ദ്ര സർക്കാർ ശേഖരിച്ചു കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു

കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി

അസാധാരണമായ സമയത്താണ് നാം ആറാമത് യോഗാ ദിനം ആചരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു

ആന്ധ്രപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ജാർഖണ്ഡ് മണിപ്പൂർ മിസോറം മേഘാലയ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വൈകിട്ട് നടക്കും നാല് സീറ്റുകളിലേത്ത് തിരെഞ്ഞെടുപ്പ് നടക്കേണ്ട കർണാടകയിൽ എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരെഞ്ഞെടുത്തപ്പെട്ടു

കണ്ണൂർ ക്ടോർഷറ്റ്ഷനകത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി

ഇതിൽ മൂന്നെണ്ണം പരീക്ഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു